അസമിലും ബീഹാര്യിലൂർ വെളളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു

കേന്ദ്ര ആഭ്യന്തരകാര്യ സഹമന്ത്രി ജി

ബിൽ ദുരുപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉറപ്പ് നൽകി രാജ്യത്ത് നിന്നും ഭീകരവാദം തുടച്ചുനീക്കുക എന്നത് മാത്രമാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും ഭീകരവാദ കേസുകളിൽ അന്വേഷണം നടത്തുമ്പോൾ കുറ്റാരോപിതരുടെ മതം ഏതെന്ന് എൻ

എ പരിഗണിക്കാറില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു കേസുകളിൽ വേഗത്തിലുള്ള വിചാരണയും ശിക്ഷാവിധി നടപ്പാക്കലുകളും ഉറപ്പാക്കാൻ അന്വേഷണ ഏജൻസിക്ക് ബിൽ കരുത്തുപകരുമെന്നും ശ്രീ

തീവ്രവാദ നിരോധന നിയമം പോട്ട പോലെ ഈ ബിൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന ആശങ്കകൾക്ക് മറുപടിയായി വോട്ട് ബാങ്ക് രാഷ്ട്രീയ തീരുമാനത്തെ തുടർന്നാണ് പോട്ട പിൻവലിച്ചതെന്നും ആഭ്യന്തരമന്ത്രി ഓർമ്മിപ്പിച്ചു രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് എൻ ഐ എ സ്ഥാപിച്ചത്

എ യ്ക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിലൂടെ ഒരുപൂർപ്പ് രാജ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് ന്റെതിറ്റിട്ട്മനീഷ് തിവാരി മുന്നറിയിപ്പ് നൽകി കുറ്റാരോപിതർക്ക് നീത്തിക്കുള്ള അവകാശം ഉറപ്പാക്കാൻ കുറ്റാന്വേഷണവും വിചാരണും പ്പെവ്വേറെ നടത്തണമെന്നും ശ്രീ തിവാരി ആവശ്യപ്പെട്ടു

മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി യോഗം ഇന്ന് രാവിലെ ബംഗളുരുവിലെ സ്വകാര്യ ഹോട്ടലിൽ ചേർന്നിരുന്നു

എൽ എ മാരുടെ പിന്തുണ തേടാനാവശ്യമായ തന്ത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു

മുൻ പ്രധാനമന്ത്രിമാരുടെ സ്മരണാർത്ഥം തീൻ മൂർത്തി സമുച്ചയത്തിൽ ഒരു പുതിയ മ്യൂസിയം സ്ഥാപിക്കാനുള്ള ശുപാർശ ഗവൺമെന്റ് അംഗീകരിച്ചതായും കേന്ദ്രമന്ത്രി പ്രഹ്ളാദ് സിംഗ് പട്ടേൽ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അറിയിച്ചു രാജ്യത്തെ പ്രധാനമന്ത്രിമാരെക്കുറിച്ചും രാജ്യത്തിന്റെ ജനാധിപത്യമൂല്യങ്ങളെക്കുറിച്ചും പൊത്തുജന അവബോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം ഒക്ട്ടോബ്മോടെ മ്യൂസിയ നിർമ്മാണം പൂർത്തിയാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവ്യാണി

ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ജയറാം താക്കൂർ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തി അപകട കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെ ന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിലാണ് മലഞ്ചരുവിൽ സ്ഥിതി ചെയ്തിരുന്ന നാലുനില കെട്ടിടം തകർന്ന് വീണത്

നേരത്തെ മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുന്നതായി കാണിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കയച്ച കത്ത് അദ്ദേഹം ടിറ്ററിലൂടെ പുറത്തുവിട്ടിരുന്നു

കഴിഞ്ഞ മാസം ആറിന് നടന്ന മ്യ്ത്ത്യീസ്ഭാ പുനഃസംഘടനയ്ക്ക് ശേഷം തന്റെ കൃത്യനിർവ്വഹണ്ണത്തിൽ നിന്ന് ശ്രീ

നിലവിൽ ഹിമാചൽ ഗവർണറായ ശ്രീ ആചാര്യ ദേവവൃതിനെ ഗുജറാത്ത് ഗവർണറായി മാറ്റിയതായി രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള അറിയിപ്പിൽ പറയുന്നു

ബ്രഹ്മപുരം ഉൾപ്പെടെ നിരവിധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്

ബാർപേട്ട മെറിഗാവോൺ ധൂബ്രി ജില്ലകളിലാണ് വെളളപ്പൊക്കം കൂടുതൽ ദുരന്തം വിതച്ചത്

മേഘാലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന മഴയിൽ രണ്ട് നദികൾ കരകവിഞ്ഞൊഴുകിയത് പടിഞ്ഞാറൻ ഗാരോ മലയോര ജില്ലകളെ വെള്ളത്തിനടിയിലാക്കി

തുടർച്ചയായ രണ്ടാം ദിവസവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ്കുമാർ ആകാശമാർഗ്ഗം സ്ഥിതിഗതികൾ വിലയിരുത്തി അടുത്തിടെയുണ്ടായ ഏറ്റവും രൂക്ഷമായ വെളളപ്പൊക്കത്തിൽ ന്റൂശനഷ്ടമുണ്ടായ അസം സംസ്ഥാനത്തിന് പ്രധാനമന്ത്രി നര്യേന്ദ്രമ്മോദി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു

രക്ഷാ പ്രവർത്തനം പുനരധിപ്പാസ്ട് എന്നീ വിഷയങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു

ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ അനേകം വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായതായും നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടതായും സംസ്ഥാന ദുരന്ത നിവാരണ സേന പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള ഡയറക്ടർ അൽ റഹ്മാൻ ഖുറേഷി അറിയിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല പ്രദേശത്ത് മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലാസ്വയിലെ പ്രധാന വിപണന കേന്ദ്രവും രണ്ട് പള്ളികളും പൂർണ്ണമായി നശിച്ചു ജില്ലാ ഭരണകർത്താക്കളും ദുരന്ത നിവാരണ അതോറിറ്റിയും പൊലീസും പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്ട്

വിഷയം സംബന്ധിച്ച കരട് സമർപ്പിക്കാൻ മുസ്തീം മതകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായി ശ്രീലങ്കൻ എം

ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യത്തെ മുസ്തീം വിഭാഗക്കാർ സമ്മർദ്ദത്തിലായിരിക്കെയാണ് പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഈ നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് മുസ്ലീം വനിതാ സംഘടനകൾ ഏറെക്കാല മായി രംഗത്തുണ്ട്

മദ്രസകളുടെ പ്രവർത്തനം നിയന്ത്രി ക്കാനായി മദ്രസാ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും ശ്രീലങ്കൻ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

പച്ചക്കറി ഇന്ധന ഊർജ്ജ മേഖല എന്നിവയിൽ ഉണ്ടായ വിലയിടിവാണ് പണപ്പെരുപ്പം വീണ്ടും കുറയാൻ ഇടയാക്കിയതെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു

മേഖലയിൽ സമാധാനം പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കാക്കിനാരയിൽ ട്രെയിൻ ഗതാഗതം സ്തംഭിപ്പിച്ചു ഇതേതുടർന്ന് സിയാൽദാ മേഖലകളിലേയ്ക്കുളള ട്രെയിൻ സർവ്വീസുകൾ തടസ്സപ്പെട്ടു